നാരീ ശക്തി പുരസ്കാര ങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിക്കും വനിതാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യ മന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും

ജലീലിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളജിൽ രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്യും മറയൂർ ശർക്കരക്ക് ഭൌമസൂചികാ പദവി ലഭിച്ചു

സമൂഹത്തിൽ സ്ത്രീ സമത്വം ഉറപ്പാക്കുന്നതിനും അർഹിക്കുന്ന അംഗീകാരം സ്ത്രീകൾക്ക് ലഭ്യ മാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ആഗോള തലത്തിൽ വനിതാ ദിനം ആച രിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒട്ടേറെ സ്ത്രീ ശാക്തീകരണ പദ്ധതി കൾക്കും അവസര തുലൃത ഉറപ്പാക്കുന്ന പരിപാടികൾക്കും ആഗോ ളതലത്തിൽ തന്നെ തുടക്കം കുറിക്കും മാറ്റത്തിന്റെ പുതിയകാലത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ കഴിവ് തെളിയിച്ച് കഴിഞ്ഞതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വനിതാ ദിന സന്ദേശത്തിൽ പറഞ്ഞു വനിതാ ശാക്തീകര ണത്തിൽ ഇന്ത്യൻ സമൂഹം മുന്നേറ്റത്തിന്റെ പാതയിലാണെന്നും ലിംഗ സമത്വം രാജ്യത്ത് പുതിയ നിരവധി അവസരങ്ങൾ ഒരുക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു ഇന്ത്യയിൽ വനിതകൾക്ക് നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയായ നാരി ശക്തി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ഇന്ന് സമ്മാ നിക്കും

ആയിരത്തോളം നാമ നിർദേശങ്ങളിൽ നിന്നാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തതെന്ന് കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധി പറഞ്ഞു ബേഠി ബചാവോ ബേഠി പഠാവോ പദ്ധതിയിൽ പെൺകുട്ടികളുടെ സുരക്ഷക്കും പുരോഗതിക്കും വഴിയൊരുക്കിയ സംസ്ഥാനങ്ങളും വൃക്തികളും സംഘടനകളുമാണ് പുരസ്കാരത്തിന് അർഹരായത് എയർ ഇന്ത്യയുടേയും അലൈൻസ് എയറിന്റേയും ഇന്നത്തെ വിമാന സർവീസുകൾ വനിതകളായിരിക്കും നിയന്ത്രിക്കുന്നത്

അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കും

വനിതാ ദിന തലേന്ന് കേരളീയ വനിതകൾക്ക് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം വനിതാദിനാശംസ കൾ നേർന്നു വനിതാ ദിനത്തിൽ സംസ്ഥാനത്തെ പ്രധാന പൊലീസ് സ്റ്റേഷനു കളിൽ വനിതാ പൊലീസ് ഉദ്യോഗസ്ഥർക്കായിരിക്കും പ്രധാന ചുമ തലകൾ പൊതുജനങ്ങളുമായി ഇടപഴകുന്ന പ്രവർത്തനങ്ങളും വനിതാ പൊലീസിനായിരിക്കുമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി മാർഗ നിർദേശം നൽകി അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ടിബറ്റൻ ബോർഡർ പൊലീസ് ആദിവാസി പെൺകുട്ടികൾക്കായി പ്രത്യേക ഹോക്കി ടീം രൂപീകരിച്ചു അതേസമയം സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം നൽകുന്നത് അവരുടെ കഴിവുകളെ അവഗണിക്കുന്നതിന് കാരണമാകുമെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി ന്യൂഡൽഹിയിൽ അഭി പ്രായപ്പെട്ടു

അത്തരം സാഹചര്യത്തിൽ അവർക്ക് സംവരണം നൽകുന്നത് അവ രുടെ കഴിവുകളെ താഴ്ത്തിക്കെട്ടുന്നതിന് തുല്യമാകുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ മുന്നോ ടിയായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി

രാഷ്ട്രീയ സാമൂഹ്യ മേഖ ലകളിലെ അന്വേഷണാത്മക റിപ്പോർട്ടുകളും വിവരണങ്ങളും മുൻനിർത്തിയാണ് അവാർഡ്

ആഗോളതലത്തിൽ ഇത് ഏറ്റവും ഉയർന്ന നിരക്കാണെന്നും അംബരീഷ് വാർത്താ കുറിപ്പിൽ പറഞ്ഞു അയോദ്ധ്യാ ഭൂമി തർക്ക കേസിന് മധ്യസ്ഥതയിലൂടെ രമ്യമായ പരിഹാരം കണ്ടെത്തുന്നത് സംബന്ധിച്ച സുപ്രീം കോടതി ഉത്തരവ് ഇന്ന് ഉണ്ടായേക്കും ബുധനാഴ്ച്ച കേസിലെ കക്ഷികളുടെ വാദം കേട്ട അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് കേസ് വിധി പറയാൻ മാറ്റുകയായി രുന്നു നിർമോഹി അഖാര ഒഴികെ ഹൈന്ദവ സംഘടനകൾ മധ്യസ്ഥ തീരുമാനത്തെ എതിർത്തപ്പോൾ മുസ്സീം സംഘടനകൾ അതിനെ പിന്തു ണച്ചു

ഖെഹാർ ദീപക് മിശ്ര മുൻ ജസ്റ്റിസുമാരായ കുര്യൻ ജോസഫ് എ

സിങ്വി തുടങ്ങിയവരുടെ പേരുകൾ കക്ഷികൾ മുന്നോട്ട് വെച്ചിരുന്നു കേരള ബാങ്ക് രൂപീകരണത്തോട് ബന്ധപ്പെട്ട് ജില്ലാ സഹകരണ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിക്കുന്നതിന് അംഗീ കാരം നൽകി

ഇതോടെ കേരള ബാങ്ക് രൂപീകരണത്തിന്റെ പ്രധാന ഘട്ടം മറി കടക്കാൻ കഴിഞ്ഞതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു വയനാട് വൈത്തിരിയിൽ പൊലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ച മാവോയിസ്റ്റ് സി

ജലീലിന്റെ മൃതദേഹം ഇന്ന് രാവിലെ കോഴി ക്കോട് മെഡിക്കൽ കോളജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും ഇൻകിസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ വൈകീട്ടാണ് ജലീലിന്റെ ശരീരം മെഡിക്കൽ കോളജിലെത്തിച്ചത് കബനീദളം നേതാവായ സി

സുപ്രീം കോടതി മാർഗ നിർദേശ പ്രകാരം വെടിവെപ്പ് മരണത്തെ പറ്റി ക്രൈംബ്രാഞ്ചിന്റേയും മജിസ്ട്രേറ്റിന്റേയും അനേഷണം ഉടൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു അതിനിടെ ജലീലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ട് നൽകണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ഇക്കാരൃത്തിൽ രാവിലെ തീരുമാനം ഉണ്ടായേക്കും

നിലമ്പൂർ വന മേഖലയോട് ചേർന്ന പൊലീസ് സ്റ്റേഷനുകളിലാണ് ആദ്യഘട്ടത്തിൽ സുരക്ഷ ശക്തമാക്കിയത് മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത വഴിക്കടവ് കരുവാര ക്കുണ്ട് നിലമ്പൂർ എടക്കര പോത്തുകല്ല് കാളികാവ് പൂക്കോട്ടും പാടം സ്റ്റേഷനുകളിൽ പൊലീസ് ജാഗ്രതാ നിർദേശം നൽകി

ഭീകരപ്രവർത്തകർക്ക് തക്ക തിരിച്ചടി നൽകാൻ സായുധ സേനക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമതി നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ജയ്പൂരിൽ അറിയിച്ചു

ഇടുക്കിയിലെ മറയൂർ ശർക്കരക്ക് ഭൌമസൂചികാ പദവി ലഭിച്ചു മറയൂർ ശർക്കരയുടെ എല്ലാ പ്രത്യേകതകളും പഠിച്ച ശേഷമാണ് പദവി ലഭിച്ചത് മറയൂർ ശർക്കരയുടെ പേരിൽ വ്യാജ ശർക്കര വിപ ണിയിൽ എത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വി

സുനിൽകുമാർ തൊടുപുഴയിൽ മുന്നറിയിപ്പ് നൽകി ബാങ്കുകളിൽ നിന്ന് കർഷകരെടുത്ത എല്ലാ വായ്പകളിലും ഗവൺമെന്റ് പ്രഖ്യാപിച്ച മൊറട്ടോറിയം പൂർണമായി നടപ്പാക്കുമെന്ന് മന്ത്രി വി

ഇന്ത്യാ ഓസ്ട്രേലിയ മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് റാഞ്ചിയിൽ

ആദ്യ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ട ഓസ്ട്രേലിയക്ക് ഇന്നത്തെ കളി നിർണായകമാണ് ഇന്ന് ജയിക്കാ നായാൽ ഇന്ത്യക്ക് അഞ്ചു മത്സര പരമ്പര സ്വന്തമാക്കാനാവും ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിൻൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സൈന നെഹ്വാളും കിഡംബി ശ്രീകാന്തും കാർട്ടറിൽ കടന്നു ഡെൻമാർക്ക് താരത്തെ തോൽപ്പിച്ചാണ് സൈന ക്വാർട്ടറിലെത്തിയ ത് കിഡംബി ശ്രീകാന്ത് ഫ്രാൻസ് താരത്തെയും പരാജയപ്പെടുത്തി ഉൽപ്പന്നങ്ങളുടെ അളവ് തൂക്കങ്ങളിൽ കൃതൃതൃ ഉറപ്പാക്കാൻ പൊതുവിപണികളിൽ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി പി

പാലക്കാട് പട്ടാമ്പിയിൽ ലീഗൽ മെട്രോളജി വകുപ്പ് ഇൻസ്പെക്ടർ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മൃഗ സംരക്ഷണ ക്ഷീരമേഖലയില്പ് സംരംഭങ്ങളുടെ വായ്പാ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായി മന്ത്രി കെ

കൊല്ലത്ത് മൃഗസംരക്ഷണ സംരംഭകത്ത സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജയിൽ സംവിധാനങ്ങൾ പരിഷ്ക്കരിക്കുന്നതിലൂടെ സാമൂഹിക പരിവർത്തനമാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം

പത്തനംതിട്ട ജില്ലാ ജയിലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ എല്ലാ സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകളിലും ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി പി തിലോത്തമൻ ചേർത്തലയിൽ പറഞ്ഞു പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും ഔട്ട്ലെറ്റുകളിൽ നടത്തിയ ഗൃഹോപകരണ വിപണനം വിജയകര മായിരുന്നുവെന്ന് മന്ത്രി അറിയിച്ചു കമ്മീഷൻ ഉപേക്ഷിക്കുന്നതി നാൽ ഉപഭോക്താക്കൾക്ക് മികച്ച നേട്ടമാണ് ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു

വെറ്റിനറി സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റായി സ്ഥിര നിയമനം നൽകുന്ന ഉത്തരവ് മന്ത്രി കെ രാജു വസന്തകുമാറിന്റെ വീട്ടിലെത്തി കൈമാറും കോഴിക്കോട്ടും കണ്ണൂരും റെയിൽവെ സ്റ്റേഷനുകളിൽ എസ്ക ലേറ്ററുകളുടെ തറക്കല്ലിടൽ ഇന്ന് നടക്കും കോഴിക്കോട്ട് നാലാം പ്പാറ്റ്ഫോമിലാണ് മൂന്നുകോടി രൂപ ചെലവിൽ എസ്കലേറ്റർ സ്ഥാപി ക്കുന്നതെന്ന് എം

രാഘവൻ എംപി അറിയിച്ചു കണ്ണൂരിലെ എസ്കലേറ്ററുകളുടെ തറക്കല്ലിടൽ പി

ആറു കോടി രൂപ ചെലവഴിച്ച് റെയിൽവെ നാല് എസ്കലേറ്ററുകളാണ് സ്ഥാപിക്കുന്നത് ബിജെപി സംസ്ഥാന ജനറൽ സ്ക്രെട്ടറി എം

രമേശിന്റെ നേതൃത്വത്തിൽ കാസർകോട്ട് നിന്ന് ആരംഭിച്ച് ഉത്തരമേഖലാ പരി വർത്തന യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കും

പെരിങ്ങത്തൂരിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് ടി

ജയചന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വ ത്തിൽ യാത്രാ സംഘത്തെ സ്വീകരിക്കും